ക്കുന്നതിനും നോട്ടു പിൻവലിക്കൽ നടപടി സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

മന്ത്രാലയം എന്ന് പുനർ നാമകർണം ചെയ്യുന്നതായി പ്രപധാനമന്ത്രി

ലോകത്തെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്ക് ഇന്ത്യയിൽ

സ്ഥിരീകരിച്ചു

കശ്മീരിൽ ഏറ്റുമുട്ടൽ നാല് സൈനീകർക്ക് വീരമൃത്യു

മൂന്ന് തീവ്രവാദികളെ വധിച്ചു

ഉപതിരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ മറ്റന്നാൾ

രാഷ്ട്ര പുരോഗതിക്ക് ഏറെ ഗുണം ചെയ്തുവെന്നും ഇത് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

അഴിമതി കള്ളപ്പണം കള്ളനോട്ട് എന്നിവയ്ക്കെതിരായ പോരുട്ട് സാധാരണക്കാരുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും പ്രെയ്നമന്ത്രി പറഞ്ഞിരുന്നു

ഗുജറാത്തിലെ ഹസിറയിലെ റോ പാക്സ് ടെർമിനലും ഹസീറയ്ക്കും ഘോഗയ്ക്കും ഇടയിൽ റോ പാക്സ് സംവിധാനവും ഉദ്ഘാടനം ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാരൃം സംഘടിപ്പിച്ച വ്യക്തമാക്കിയത്

സേനാ വിന്യാസത്തിനടക്കമുള്ള ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ മൾട്ടിമോഡൽ കണക്റ്റിവിറ്റി അതിവേഗം വികസിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു റോഡ് റെയിൽ ആകാശം കടൽ ഗതാഗതം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാനും തടസങ്ങൾ നീക്കംചെയ്യാനും ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗതാഗതത്തിനായി കൂടുതൽ പണം ചെലവഴിക്കുന്നുണ്ട് ജലഗതാഗതത്തിലൂടെ സേനാ വിന്യാസത്തിനുള്ള ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗുജറാത്തിലെ തീരദേശമേഖല അഭിവൃദ്ധിയുടെ കവാടമായി മാറുകയാണെന്ന് മോദി പറഞ്ഞു പ്രകൃതിയുമായി ബന്ധപ്പെട്ട നിരവധി വെല്ലുവിളികൾ പദ്ധതിക്ക് മുന്നിൽ വന്നിട്ടുണ്ടെന്നും ആധുനിക സാങ്കേതിക്വിദ്യയിലൂടെ അവ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

മൂന്നര കോടി പേർ കോവിഡ് മുക്തരായി

ഭിന്നിപ്പിക്കുന്നതല്ല ഒന്നിപ്പിക്കുന്ന നേതൃത്വമായിരിക്കും ഇനി അമേരിക്കയ്ക്ക് നീലയും ചുവപ്പുമായി സ്റ്റേറ്റുകളെ കാണാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിക്കാണും രാജ്യത്തിന്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും ജോ ബൈഡൻ പറഞ്ഞു കോവിഡിനെ തോൽപ്പിക്കാൻ സമ്പദ് ഘടന മെച്ചപ്പെടുത്താൻ വംശീയതയുടെയും അനീതിയുടെയും വേരുകളെ ഇല്ലാതാക്കാൻ കാലാവസ്ഥാ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തുടങ്ങി രാജ്യത്തിനു ഉണർവേകുന്ന പ്രവർത്തനങ്ങളുമായി തങ്ങൾ തുടക്കം കുറിക്കുമെന്ന് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തു നിയുക്ത വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമലാ ഹാരിസ് പറഞ്ഞു

ആർമി ക്യാപ്റ്റനും രണ്ട് സൈനിക ഓഫീസർമാരും ഒരു ബി

എഫ്

നുഴഞ്ഞു കയറാൻ ശ്രമിച്ച തീവ്രവാദികളുമായാണ് ഏറ്റുമുട്ടലുണ്ടായത് മൂന്നു തീവ്രവാദികളും കൊല്ലപ്പെട്ടു

ബീഹാറിലെ വാൽമീകി നഗർ ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണലും മറ്റന്നാളാണ്

എല്ലാ സീറ്റുകളിലെയും വോട്ടെണ്ണൽ സുരക്ഷിതവും സുതാര്യവുമായ രീതിയിൽ നടക്കുമെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ബാലമുരുകൻ പറഞ്ഞു

ക്രിക്കറ്റിലെ രണ്ടാം കാളിഫയർ മത്സരത്തിന് അബുദാബിയിലെ ഷെയ്ഖ് സയിദ് സ്റ്റേഡിയത്തിൽ തുടക്കമായി സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് പോരാട്ടം

എൽ പതിമൂന്നാം സീസൺ ഫൈനലിൽ ഇന്നത്തെ വിജയിയാക്ടിരിക്കും മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നത് ചൊവ്വാഴ്ച ദുബ്യായിലാണ് ഫൈനൽ ടോസ് നേടിയ ഡൽഹി ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന ഉത്തരാഖണ്ഡ് തമിഴ്നാട് ചണ്ഡിഗഡ് ജമ്മു കശ്മീർ കേരളം ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നെല്ല് സംഭരണം പുരോഗമിക്കുകയാണ്

കട്ടിയുള്ള പുക കാഴ്ച പോലും മറയ്ക്കും വിധം രാവിലെ മുതൽ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ദൃശ്യമാണ് അയൽ സംസ്ഥാനങ്ങളിൽ മാലിന്യങ്ങൾ ഉൽപ്പെടെ കത്തിക്കുന്നത് ഡൽഹിയിലെ മോശം വായുവിന് പ്രധാന ഘടകമെന്ന് ചൂണ്ടികാണിക്കപ്പെടുന്നു സ്ഥിതി കൂടുതൽ വഷളാവുകയാണെന്നും നാളെ രാവിലെ വരെ തുടരാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ ഗവേഷകർ അറിയിച്ചു

ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം ഇതിന് അനുമതി നൽകുമെന്ന് അദ്ദേഹം സൂചന നൽകി ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ മാസ്ക് നിർബന്ധമാണെന്നും ധരിക്കാത്തവർക്ക് പിഴ ചുമത്തുമെന്നും വെബ്കാസ്റ്റ് വഴി ജനങ്ങളെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു

അന്തിയൂർ ഗ്രാമത്തിൽ കാർ മറിഞ്ഞാണ് അപകടം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു നാല് പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു